പൊതു ബജറ്റിന്മേലുളള ചർച്ചയ്ക്ക് ന് കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ മറുപടി നല്കും

കെ എൽ രാഹുലിന് സെഞ്ചറി

ജെ പി രാമതാണ് കോൺഗ്രസിന് ഇതുവരെ ഒരു മണ്ഡലത്തിലും ലീഡ് നേടാനായിട്ടില്ല

ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിക്ക് ഭരണനേട്ടങ്ങൾ ഗുണം ചെയ്തുവെന്നാണ് ലീഡ് നില സൂചിപ്പിക്കുന്നത്

യുടെ വോട്ട് വിഹിതത്തിലും വർദ്ധനവുായിട്ടു്

ജെ പിയുടെ എല്ലാ അംഗങ്ങളും പാർലമെന്റിന്റെ ഇരുസഭകളിലും ഹാജരാകണമെന്ന് ചൂിക്കാട്ടി പാർട്ടി വിപ്പ് നൽകിയിട്ടു്

രാം ഘട്ടം അടുത്ത മാസം രിനാണ് ആരംഭിക്കുന്നത്

പ്രസിഡന്റ് ആയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത് അമേരിക്കൻ പ്രഥമ വനിത മെലേനിയ ട്രംപും അദ്ദേഹത്തെ അന്മുഗമിക്കും

്ഇന്ത്യൻ സമൂഹവുമായും അവർ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആഗോള നയതന്ത്ര സഹകരണവും പരസ്പര ധാരണയും വിശ്വാസവും സൌഹൃദവും ഊട്ടിഉറപ്പിക്കുന്നതായിരിക്കും ട്രംപിന്റെ ഇന്ത്യൻ സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഡൊണൾഡ് ട്രംപിന്റെയും നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രതിരോധം തീവ്രവാദത്തിനെതിരെയുള്ള നടപടികൾ ഊർജ്ജ സഹകരണം തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗതിയാണ് ഉായത്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

വ്യോമ മാർഗ്ഗമുളള തീവ്രവാദ അക്രമങ്ങളെ ചെറ്റുക്കാൻ ഇന്ത്യൻ പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തുക്ക്യാണ് ലക്ഷ്യം ഈ തീരുമാനം ഇന്ത്യ യു എസ് പ്രി്തിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വില്യിരുത്തൽ

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചയാണ് നടന്നത് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗുമായും മീർ ബെൻ ശാബത് കൂടിക്കാഴ്ച നടത്തി ലക്നൌവിൽ സംസ്കാരം പരസ്പര താൽപര്യമുളള വിഷയങ്ങൾ തുടങ്ങിയവയിൽ ഊന്നി ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഏറെ മുന്നോട്ട് പോകുകയാണെന്ന് കഴിഞ്ഞയാഴ്ച ലക്നൌവിൽ നടന്ന ഡിഫൻസ് എക്സ്പോയിൽ പങ്കെടുക്കവെ ഇസ്രായേൽ അംബാസിഡർ ഡോ

അടുത്തിടെ ആയുധങ്ങൾ വച്ച് കീഴടങ്ങിയ ബോഡോലാന്റ് സംഘടനയിലെ അംഗങ്ങളെ ശ്രീ

കലാപ രഹിത അസം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കൊക്രത്ഞറിൽ നടന്ന ബോഡോലാന്റ് ദിനാചരണ ചടങ്ങിൽ പ്രഅദ്ദേഹം പറഞ്ഞു

ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനായുള്ള വിവരശേഖരണം മറ്റൊരു ഘട്ടത്തിലാണ് നടക്കുകയെന്നും ആ ഘട്ടം സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് അനാവശ്യ ഭീതി പരത്തരുതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉണ്ടെന്നത് ശരിയാണ് ഇത് പരിഹരിക്കാനായി സെൻസസ് നടപടികൾക്ക് മുൻപ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു

എ ആരോപിച്ചു

നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി വുഹാനിലെ മെഡിക്കൽ സംഘവുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അദ്ദേഹം കൊറോണ വൈറസ് ബാധയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു

കഴിഞ്ഞ വർഷം സെപ്തംബറിലുായ ശക്തമായ മഴയെ തുടർന്ന് പട്നയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഉായതാണ് നടപടിക്ക് കാരണം കൃത്യവിലോപം ചൂിക്കാട്ടി ഏഴ് എഞ്ചിനീയർമാരെ സർവ്വീസിൽ നിന്ന് പിരിച്ചുവിട്ടു സ്പെൻഷൻ ലഭിച്ചതിൽ ഒരു ഐ

മൂന്ന് ഡെപ്യൂട്ടി കളക്ടർമാർക്കും സസ്പെൻഷൻ ഉ് ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ ബിഹാർ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ചിട്ടു്

കാബൂളിലെ സൈനിക അക്കാദമി കൂവാടത്തിലേക്ക് വാഹനം ഇടിച്ചുകയറ്റിയാണ് ആക്രമണം നടത്തിയത്ത് സ്ംഭവത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു

സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇത്തൂവരെ ആരും ഏറ്റെടുത്തിട്ടില്ല

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

സെഞ്ച്ചരി നേടിയ കെ എൽ രാഹുലിന്റെയും അർധസെഞ്ചറിനേടിയ ശ്രേയസ് അയ്യരുടെയും ഇന്നിംഗ്സാണ് ഇന്തൃയെ മികച്ച സ്കോറിൽ എത്തിച്ചത്

സി വിലക്കേർപ്പെടുത്തി